കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി വിഭാഗത്തിലെ രണ്ടംഗങ്ങളും ബി ജെ പിയിലെ ഒ രാജഗോപാലും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു സ്വർണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്നും പിണറായി രാജി വെയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അവിശ്വാസപ്രമേയം കൊണ്ടുവന്നത്

ദിവസത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിയമസഭ ഒരു അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ദേദ ഗവൺമെന്റിന്റെ ഭരണനേട്ടങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിശ്വാസ പ്രമേയ ചർച്ചയക്ക് മറുപടി നൽകിയത് അവിശ്വാസ പ്രമേയത്തിനു പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേദിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ അധികാരക്കൊതി മൂലം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ വിശാലവേദി ഒരുങ്ങുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഗവൺമെന്റുകളെ തകർത്ത പാരമ്പര്യമാണ് കോൺഗ്രസിനെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു

അവിശ്വാസ പ്രമേയത്തിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം മീഡിയറൂമിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടുന്ന സ്ഥിതിവിശേഷമാണ് സഭയിൽ കണ്ടതെന്നും ചെന്നിത്തല പറഞ്ഞു രേഖാമൂലം ഉന്നയിച്ച ആരോപണങ്ങൾക്കു പോലും മറുപടി പറയാതെ ഗവർണർ നേരത്തെ സഭയിൽ നടത്തിയ പ്രസംഗവും ബജറ്റ് പ്രസംഗങ്ങളും ആവർത്തിക്കുക മാത്രമാണ് പിണറായി സഭയിൽ ചെയ്തതെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു

സംസ്ഥാന നിയമസഭയിൽ ഒരംഗം നടത്തുന്ന ഏറ്റവും നീണ്ട പ്രസംഗമായി ഇതു മാറി

പ്രതിപക്ഷ മുദ്രാവാക്യങ്ങൾക്കിടയിലാണ് പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗം പൂർത്തിയാക്കിയത്

പിയുടെ പത്ത് പ്രമുഖ നേതാക്കൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് നിയമസഭക്ക് പുറത്ത് സമരം ചെയ്തപ്പോൾ സഭക്കകത്തിരുന്ന് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിച്ചതെന്തിനാണെന്ന് ബി

രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയ്ക്ക് മുമ്പിൽ മുഖ്യമന്ത്രി പ്രതിഷേധിച്ച ബിജെപി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ

കോഴിക്കോട് ജില്ലാകമ്മിറ്റിയുടെ നടത്തിയ നേതൃത്വത്തിൽ പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദദ സംസ്ഥാനത്ത് ഇന്നലെ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ നേരിയ കുറവ്

കൂടുതൽ വിവരങ്ങളുമായി ജഷിതകുമാരി

ദേഴ ഇന്നലെയും തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് കോവിഡ് ബാധിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇടച്ചേരിയിലെ ആഷിഖ് പാനൂർ കുറ്റേരിയിലെ മുഹമ്മദ് ഷഹീർ ഇരിട്ടി പായം സ്വദേശിനി അന്നമ്മ എന്നിവരാണ് മരിച്ചത് ദേദ കൊല്ലം ജില്ലയിൽ സമ്പർക്കം വഴി കൊവിഡ് വ്യാപനം വർദ്ധിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ്ലാൽ

മരണം രണ്ട് ലക്ഷത്തോട് അടുക്കുന്നു

ജിയും വൈദ്യുതിയും അടിസ്ഥാനമാക്കി ആധുനിക വൽക്കരിക്കുമെന്ന് കേന്ദ ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു മിക്ക സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ടുകളും പരമ്പരാഗത ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും ഇത് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഒരു വെബിനാറിൽ പറഞ്ഞു രാജ്യം ക്രൂഡോയിൽ ഹൈഡ്രോകാർബൺ എന്നിവ ഇറക്കുമതി ചെയ്യുന്നതിന് വൻതുകയാണ് ചെലവഴിക്കുന്നത്

സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രിയാണ് കൌൺസിലിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ

ദേഴ കോൺഗ്രസ് നേരിടുന്ന വെല്ലുവിളികൾ കൈകാര്യം ചെയ്യാൻ സംഘടനയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കോൺഗ്രസ് പ്രവർത്തകസമിതി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ചുമതലപ്പെടുത്തി പുതിയ പ്രസിഡണ്ടിനെ തെരഞ്ഞെടുക്കുന്നതിന് എ ഐ സി സി സമ്മേളനം ചേരുന്നതുവരെ ഇടക്കാല പ്രസിഡണ്ട് സ്ഥാനത്തു തുടരാൻ ഓൺലൈൻ വഴി ചേർന്ന പ്രവർത്തകസമിതി ഏകകണ്ഠമായി സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചതായി പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ദേശ ഓണത്തോടനുബന്ധിച്ച് കെ

ടി സിയുടെ പ്രത്യേക അന്തർസംസ്ഥാന സർവീസ് ഇന്ന് ആരംഭിക്കും

യാത്രക്കാർ കേരള ഗവൺമെന്റിന്റെ കോവിഡ് ജാഗ്രത പോർട്ടലിലും കർണാടകയുടെ സേവ സിന്ധു പോർട്ടലിലും രജിസ്റ്റർ ചെയ്യണം

രുദ പ്ലസ് വൺ ഏക ജാലക പ്രവേശനത്തിന് അപേക്ഷ സമർപ്പണം ഇന്ന് വൈകീട്ട് അഞ്ചിന് അവസാനിക്കും അപേക്ഷകർക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കാൻ സമപരിധിയും ഇതോടൊപ്പം അവസാനിക്കും

രുദ കൊല്ലം ജില്ലയിൽ കടൽക്ഷോഭം രൂക്ഷമായ ആലപ്പാട് മേഖലയിൽ പ്രതിരോധം തീർക്കാൻ ജിയോ ബാഗുകൾ സ്ഥാപിക്കാനും അനുബന്ധ നിർമാണ പ്രവർത്തനങ്ങൾ നടത്താനും അനുമതിയായെന്ന് എ എം ആരിഫ് എം പി അറിയിച്ചു തീരദേശ മേഖലയിലെ ജാഗ്രതാ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഗൂഗിൾ മീറ്റ് വഴി ചേർന്ന ജില്ലാ ജാഗ്രതാ സമിതി യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ദേദ വയനാട് ജില്ലയിൽ ക്ഷീരവികസന വകുപ്പിന്റെ ഓണക്കാല ഊർജ്ജിത പാൽ പരിശോധനാ യജ്ഞം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് കെ

ഇതിലൂടെ ഉപഭോക്താക്കൾക്ക് സൌജന്യമായി പാലിന്റെ ഗുണനിലവാരം പരിശോധിക്കാം